എഞ്ചിൻ വാങ്ങാൻ പ്രതിരോധ സംഭരണ കൌൺസിൽ അനുമതി നൽകി

കേസുകളിൽ സുപ്രീംകോടതിയുടെ നിർണ്ണായക വിധി ഇന്നുണ്ടാകും

എൻ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭിനന്ദനം

ഇന്ത്യയ്ക്ക് നാടകീയ സമനില ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളിയെ ഇന്ന് അറിയാം

ടാങ്കുകളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കാൻ എൻജിനുകൾ വാങ്ങുന്നതിലൂടെ സാധിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി

കൂടുതൽ വാറന്റി കാലയളവ് കൂടി ഉൾപ്പെടുത്തിയാണ് ആയിരം എൻജിനുകൾ വാങ്ങാൻ അനുമതി നൽകിയത്

ആധാറിന്റെ ഭരണഘടനാ സാധുത കോടതി നടപടികളുടെ തൽസമയ സംപ്രേഷണം പട്ടികജാതി പട്ടികവർഗ്ഗ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് സംവരണം എന്നീ നിർണ്ണായക കേസുകളിലാണ് വിധി വരാൻ സാധൃത ആധാറിന്റെ സാധൃത സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടന ബെഞ്ചാണ് വിധി പറയുന്നത്

ആധാർ സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദമാണ് പ്രധാനമായും ഉയർന്നത് പാവപ്പെട്ടവർക്ക് സാമൂഹ്യക്ഷേമ പദ്ധതികൾ ലഭ്യമാക്കാൻ ആധാർ അത്യാവശ്യമാണെന്നാണ് കേന്ദ്രം നിലപാട് സ്വീകരിച്ചത് സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ വിതരണം ആധാറിനെ അടിസ്ഥാനമാക്കി ആയതിനാൽ കേന്ദ്രഗവൺമെന്റിന് കോടതി തീരുമാനം നിർണ്ണായകമാകും

ഇന്നലെ ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച

നിലവിലെ വായ്പാ പരിധി മൂന്നര ശതമാനത്തിൽ നിന്ന് നാലര ശതമാനമാക്കണമെന്നാണ് കേരളം ആവ്യത്ത്പെട്ടത്

കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗ്ഗമായി വകുപ്പുകൾ അനുവദിക്കുന്ന തുകയിൽ പ്പത്ത് ശതമാനം വർദ്ധന വരുത്തണമെന്നും സംസ്ഫാനും ആവശ്യപ്പെട്ടു കേന്ദ്ര റോഡ് നിർമ്മാണനിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു പ്രളയത്തിൽ നഷ്ടം സംഭവിച്ച വ്യാപാരികൾ ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്കു കൂടി സഹായം ലഭ്യമാക്കണം ലോകബാങ്കിൽ നിന്നും എഡിബി യിൽ നിന്നും സഹായം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്രം സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു എല്ലാ ആവശ്യങ്ങളോടും അനുഭാവപൂർവ്വമായാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

എസ് പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പ്രസംഗികവെയാണ് ട്രംപ് ഇന്ത്യയെ അഭിനന്ദിച്ചത് വ്യാപാര അസന്തുലിതാവസ്ഥ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ചൈനക്കെതിരെയുള്ള നിലപാടുകൾക്ക് പിന്നിലെന്നും ട്രംപ് പറഞ്ഞു ഇറാനിയൻ ഭരണകൂടത്തെ പ്രസംഗത്തിൽ ട്രംപ് നിശിതമായി വിമർശിച്ചു

പ്രതിരോധ സഹകരണം വാണിജ്യം കാരൃക്ഷമതാ നിർമ്മാണം എന്നീ വിഷയങ്ങളിലായിരുന്നു ചർച്ചു വിവര സാങ്കേതിക വിദ്യ വാണിജ്യം നിക്ഷേപം സംസ്കാരം വിദ്യാഭ്യാസം ടൂറിസം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ശ്രീമതി സ്വരാജ് എസ്റ്റോണിയൻ വിദേശകാരൃ മന്ത്രിയുമായി ചർച്ച നടത്തി

ജപ്പാനിൽ നിന്നും ലഭിക്കേണ്ട ധന്ദസ്ഥഹായം ഇതു വരെ സമയബന്ധിതമായി ലഭിച്ചിട്ടുണ്ടെന്ന് രാജ്യത്ത് പദ്ധതി നടപ്പിലാക്കാൻ ചുമതല ഉള്ള ദേശീയ അതിവേഗ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ജപ്പാൻ ഏജൻസി പിൻവാങ്ങിയെന്നാണ് നേരത്തെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട വന്നത്

ഇന്ത്യൻ സായുധ സേനകളുടെ ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും ന്യൂഡൽഹിയിൽ ഇന്ത്യാ ഗേറ്റിലായിരിക്കും പ്രധാന പരിപാടികൾ

വെള്ളിയാഴ്ച ഇന്ത്യാ ഗേറ്റ് പരിസരത്ത് മന്ത്രി നിർമ്മല സീതാരാമൻ പരാക്രം പർവ്വ് ഉദ്ഘാടനം ചെയ്യും

നവീൻ എന്ന സൈനികനാണ് അറസ്റ്റിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് അഭിഷേക് മഞ്ജിത് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു

ട്രെക്കിങ്ങിനിടെ വനമേഖലയിൽ കുടുങ്ങിയ ജർമ്മൻ ദമ്പതിക്കളെയും വ്യോമസേന രക്ഷപ്പെടുത്തി

അവസാന പന്ത് വരെ ആവേശം നീണ്ട മൽസരത്തിൽ മികച്ച പ്രകടനമാണ് അഫ്ഗാൻ താരങ്ങൾ പുറത്തെടുത്തത്

ധോണി ക്യാപ്റ്റനാകുന്ന ഇരുന്നൂറാം ഏകദിന മൽസരമായിരുന്നു ഇത് ഇരുന്നൂറോ അതിലധികമോ ഏകദിനത്തിൽ ടീമിനെ നയിക്കുന്ന ലോകത്തെ മൂന്നാമത്തെ താരമാണ് ധോണി ഇന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും

ഒരു മൽസരം മഴയെത്തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു

തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാനം ആദ്യമായാണ് ഏഷ്യൻ ചാംപ്യൻഷിപ്പിനു വേദിയാകുന്നത്

കേര്ളം ഒറ്റ മനസ്സോടെ അഭിലാഷ് ടോമിക്കൊപ്പം ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു

വെളിയനാട് മുളന്തുരുത്തി സഹകരണ സംഘത്തിന്റെ വട്ടപ്പാറ ബ്രാഞ്ച് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഈ പദ്ധതിയുടെ വിജയത്തിനായി സംസ്ഥാനത്തെ മൂന്നരക്കോടിയോളം വരുന്ന സഹകാരികൾ സഹകരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു

പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കൂന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി

വിധാൻ ആപ്തിക്കേഷനുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടി കേന്ദ്രമന്ത്രി വിജയ് ഗോയലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു

പാർലമെന്റിലുൾപ്പെടെ നിയമനിർമ്മാണങ്ങളുടെ പരിഷ്ക്കരണം ആവശ്യമാണെന്ന് ശ്രീ

രാജ്യസഭയുടേയും ലോക്സഭയുടേയും മിക്ട്രവുയർത്താൻ ഈ പരിപാടി കൊണ്ട് സാധിക്കുമെന്ന് നിതി ആയോഗ് സി ഇ ഒ അമിതാഭ് കാന്ത് വൃക്തമാക്കി

മൂന്നര പതിറ്റാണ്ടോളം സംസ്ഥാന സിവിൽ സർവീസിൽ വിവിധ പദവികൾ വഹിച്ചു